നൂതന സാങ്കേതികവിദൃ പ്രയോജനപ്പെടുത്തി റെയിൽവേ സമഗ്രമായി നവീകരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

സമ്പദ്ഘടന ശക്തിപ്പെടുത്താൻ തൃദ്ദുശീയ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രചാരണം നൽകണ്ട്രിമന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ

ദേശീയ റോഡ് സുരക്ഷാ മാസത്തിന് നാളെ തുടക്കം റോഡപകടങ്ങൾ കുറയ്ക്കാൻ ജനങ്ങളെ ബോധവൽക്കരിക്കും

ഐ എസ് എൽ ഫുട്ബോളിൽ ജംഷഡ്പൂരിനെതിരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ജയം

ഇന്ത്യൻ റെയിൽവേയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഒരു സ്ഥലത്തേയ്ക്ക് എട്ട് ട്രെയിൻ സർവ്വീസ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കെവാദിയയെ പ്രധാന വിനോദ സഞ്ചാര കേന്ദ്രമാക്ക്ട് മാറ്റാനും അതിലൂടെ മേഖലയിലെ ജനജീവിതം മെച്ചപ്പെടൂത്താനും കഴിയും

ഗിരിവർഗ്ഗ ഗ്രാ്മുങ്ങളിലും സമീപ പ്രദേശങ്ങളിലും തൊഴിലവസരങ്ങൾ വർധിക്കുറും ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ആശയത്തിന്റെ മനോഹാരിയ്ക്ക് തിളക്കം നൽകിയ ഐതിഹാസിക ദിനമാണിതെന്ന് പ്രധാനിമുത്തി പറഞ്ഞു സർദാർ വല്ലഭ് ഭായ് പട്ടേലിന്റെ ദർശനവും ഇന്ത്യൻ റെയിൽവെയുടെ ദൌത്യവും സംയോജിതമായ ദിനം കൂടിയാണിന്നെന്ന സവിശേഷതയുമുണ്ട് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഭാരത് രത്ന എം

രാമചന്ദ്രന് പ്രണാമമർപ്പിച്ച പ്രധാനമന്ത്രി കെവാദിയയിലേയ്ക്കുള്ള ഒരു ട്രെയിൻ പുരട്ചി തലൈവർ ഡോ

രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണെന്നത് സന്തോഷം പകരുന്നതായി അറിയിച്ചു ഗുജറാത്തിന് ഇന്ന് ചരിത്ര ദിനമാണെന്ന് ചടങ്ങിൽ സംബന്ധിച്ച ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് റുപാണി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്രം കൊണ്ടുവന്ന മൂന്നു കാർഷിക നിയമങ്ങൾ രാജ്യത്തെ കർഷകരുടെ വരുമാനം പലമടങ്ങ് വർധിപ്പിക്കാൻ സഹായിക്കും

കോവിഡ് വാക്സിനേഷൻ യജ്ഞത്തിന് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മാലദ്വീപ് പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലി അഭിനന്ദിച്ചു

ഈ നഗരങ്ങളിലെ പരിസ്ഥിതി സൌഹൃദ പൊതുജന ഗതാഗത സംവിധാനത്തിന് പദ്ധതികൾ ഉൌർജ്ജം പകരും

പുതുച്ചേരിയുടെ വികസനത്തിനായി അക്ഷീണം പ്രയത്നിച്ച നേതാവായിരുന്നു കെ

ശങ്കറെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു

ജെ

യെ ശക്തിപ്പെടുത്താനും യത്നിച്ചു

നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു

രാജ്യത്ത് റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള ബോധവത്ക്കരണം വളർത്തുന്നതും റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതും ലക്ഷ്യമിട്ടാണ് മാസാചരണം കേന്ദ്ര മന്ത്രിമാരായ രാജ്നാഥ് സിങും നിതിൻ ഗഡ്കരിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും കേന്ദ്രമന്ത്രി വി

റോഡ് സൂരക്ഷ വിഷയമായുള്ളം സിനിമാ വാഗ അതിർത്തി മുതൽ കന്യാകുമാരി വരെ പ്രന്ടക്കുന്ന ദേശീയ സുരക്ഷിത വേഗതാ വെല്ലുവിളി ചാമ്പ്യൻഷിപ്പിന്റെ തുടക്കം റോഡ് സുരക്ഷാ അവാർഡ് വിതരണം തുടങ്ങിയുവ ഈ മാസം നടത്തും സംസ്ഥാന സർക്കാരുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇൻഷുറൻസ് കമ്പനികൾ തുടങ്ങിയവരും ഈ ഉദ്യമത്തിൽ പങ്കെടുക്കും

ഒരു കോടി രണ്ടു ലക്ഷത്തോളം പേർ ഇതുവരെ കോവിഡിൽ നിന്ന് മുക്തരായിട്ടുണ്ട്

ശൈലജ അറിയിച്ചു

വോയിസ് കേരളത്തിൽ എറണാകുളത്തും കോഴിക്കോട്ടുമാണ് ഏറ്റവും കൂടുതൽ രോഗബാധ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്

രണ്ടര കോടി പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്

ആഴക്കടലിൽ അകപ്പെടുന്ന ബോട്ടുകളെ കണ്ടെത്താനും തിരിച്ചറിയാനും സഹായിക്കുന്ന സംവിധാനമാണ് ജിപിഎസ് അല്ലെങ്കിൽ ജിപിആർഎസ് നെറ്റ് വർക്കിംഗുള്ള സുരക്ഷാ രജിസ്ട്രേഷൻ ബോർഡ്

എസ് എൽ ഫുട്ബോളിലെ ആദ്യ മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ജയം ജംഷഡ്പൂർ എഫ്സിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് തോൽപ്പിച്ചത് ഗോവയും എ

കെ ബഗാനുമായുള്ള രണ്ടാമത്തെ മത്സരം തുടരുന്നു

ദാദാ സാഹബ് ഫാൽക്കെ സത്യജിത് റേ റെട്രോസ്പെക്ടിവിനും ഇന്ന് തുടക്കമാകും

ഇവർ രാജ്യത്തിന് നൽകിയ സംഭാവനകളെ ആദരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം

മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷ്ഠൺർ സുനിൽ അറോറയുടെ നേതൃത്വത്തിൽ പൂർണ്ണ കമ്മിഷ്രനാണ് മൂന്നു ദിവസത്തെ പര്യടനത്തിനായി അസ്സമില്ലെത്തുന്നത്

മരണപ്പെട്ടവരുടെ കൂടുംബാംഗങ്ങളുടെ ദുഖത്തിൽ പങ്കുചേരുന്നതായി ശ്രീ നരേന്ദ്രമോദി അറിയിച്ചു